നൽകുന്ന പ്രധാൻമന്ത്രി ശ്രം യോഗി മൻധൻ പദ്ധതിക്ക് ഇന്ന് തൂടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഉദ്ഘാടനം ചെയ്യും

കേരളത്തിലെ കാർഷികമേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ന് ചെയ്യാൻ സംസ്ഥാന് മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ഇന്ന്

ശീതയുദ്ധ കാലത്ത് യു

ആണവായുധ നിയന്ത്രണ കരാർ റഷ്യ നിർത്തിവച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

കർഷകത്തൊഴിലാളിക്കൾ ബീഡി തൊഴിലാളികൾ റിക്ഷാതൊഴിലാളികൾ ഉച്ചൂഭുക്ഷണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗങ്ങളാകാം

എഫ് ഇ

സി എൻ

എസ് അംഗങ്ങളും നികുതി ദായകരും പദ്ധതിക്ക് അർഹരല്ല

ഗുണഭോക്താവ് മർൺറ്പ്പട്ടാൽ ജീവിത പങ്കാളിക്ക് കുടുംബ പെൻഷൻ ലഭിക്കും അസ്ഘടിത ്മേഖലയിലെ തൊഴിലാളികൾക് കോമൺ സർവ്വീസ് സെൻ്റ്റു്കൾ വഴി ആധാർ കാർഡ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എ്ന്നിവ നൽകി സ്വയം സാക്ഷ്യപ്പെടുത്തലിലൂടെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം

ന്യൂസ് ഡസ്ക് ആകാശവാണി

സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടക്കും

വിദ്യാർത്ഥി ഭവന്റെയും ശിക്ഷൻ ഭവന്റെയും നിർമ്മാണോദ്ഘാടന പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ആദ്യഘട്ട മെട്രോ റെയിൽ പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ തുടക്കം കുറിച്ചു മെട്രോയിൽ യാത്ര ചെയ്ത അദ്ദേഹം കുട്ടികളുമായി ആശയവിനിമയം നടത്തി തുടർന്ന് അദ്ദേഹം രണ്ടാം ഘട്ട മെട്രോ റെയിൽ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനവും നിർവ്വഹിച്ചു അഹമ്മദാബാദിനു സമീപം ജസ്പൂർ ഗ്രാമത്തിൽ വിശ്വ ഉമിയ ധാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പ്രധാനമന്ത്രി നിർവ്വഹിച്ചു ആയുഷ്മാൻ ഭാരത് പാവങ്ങൾക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണെന്നും ആരോഗ്യ രംഗത്ത് ഗുജറാത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മുങ്ങിത്താഴുകയായിരുന്ന മൽസ്യബ്ബന്ധന ബോട്ടിൽ നിന്നാണ് ഇവരെ നാവികസേന രക്ഷപ്പെടുത്തിയുതെന്ന് പ്രതിരോധവക്താവ് അറിയിച്ചു

മേഖലി്യിൽ പെട്രോളിങ് നടത്തുകയായിരുന്ന നാവികസേന ബോട്ടിലുണ്ടായിരുന്നവരെ കണ്ടെത്തുകയായിരുന്നു

കേരള ലക്ഷദ്വീപ് തീരങ്ങളിലെ ആഴക്കടലുകളിൽ ഉണ്ടാകുന്ന അടിയന്തര സാഹചര്യം നേരിടുന്നതിന് വിന്യസിച്ചിട്ടുള്ള ഐ

ജപ്തി നടപടികളെ തുടർന്നുള്ള സ്ഥിതി യോഗം ചർച്ച ചെയ്തേക്കും ജപ്തി നടപടികൾ നിർത്തിവയ്ക്കാൻ സഹകരണ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു മുഖ്യമന്ത്രി വിളിച്ച ബാങ്കേഴ്സ് സമിതി യോഗം നാളെ തിരുവന്തപുരത്ത് ചേരും

കഴിയുമെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ യോഗം വിളിച്ച് ചേർക്കണമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ അദ്ധ്യക്ഷൻ ജസ്റ്റിസ് ആദർശ് കുമാർ ഗോയൽ അധ്യക്ഷനായ ബെഞ്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും പരിസ്ഥിതി വനം കാലാവസ്ഥാ വൃതിയാന മന്ത്രാലയത്തോടും കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും ആവശ്യപ്പെട്ടു

മുഖ്യ ഡെ്പ്യൂട്ടീ ഇലക്ഷൻ കമ്മീഷണർ സന്ദീപ് സക്സേനയുടെ നേതൃത്പത്തിൽ നാലംഗ സംഘമാണ് സന്ദർശനത്തിനായി എത്തിയിട്ടുള്ളത് സംസ്ഥാനത്തെ ഏഴ് ദേശീയ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും മൂന്ന് പ്രാദേശിക പാർട്ടി നേതാക്കളുമായും കമ്മീഷ്ടൻ ഇന്ന് ചർച്ച നടത്തും

കാന്ധഹാർ ഹെൽമണ്ട് പ്രവിശ്യകളിലാണ് പ്രളയം കൂടുതൽ ബാധിച്ചത്

ശീതയുദ്ധകാലത്തെ സുപ്രധാന കരാറാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവസാനിപ്പിച്ചത്

എസ് എസ്

വ്യവസ്ഥകളിൽ നിന്ന് അമേരിക്ക വ്യതിചലിച്ചതിനെ തുടർന്നാണ് കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചതെന്ന് ക്രെംലിൻ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ അറിയിച്ചു ആറ് മാസത്തിനകം കരാറിൽ നിന്ന് പിൻമാറുമെന്ന് യു എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു

ഡെറാഡൂണിൽ ഇന്നലെ നടന്ന ശൌരൃ സമ്മാൻ സമാരോഹ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ

ന്യൂഡൽഹിയിൽ ഉദ്ഘ്ടുടന്ം ചെയ്ത ദേശീയ യുദ്ധ സ്മാരകം വീരമൃത്യു വരിച്ച സ്പൈനികരുടെ ഓർമ്മ നിലനിർത്താനാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്രസിംഗ് റാവത്തും ചടങ്ങിൽ പങ്കെടൂത്തു

ഒ യുടെ യുവ വിജ്ഞാൻ പരിപാടിക്ക് തുടക്കമായി പദ്ധതിയനുസരിച്ച് ബഹിരാകാശ ശാസ്ത്രത്തെക്കുറിച്ച് ഐ എസ് ആർ ഒ കുട്ടികൾക്ക് അടിസ്ഥാന വിവരങ്ങൾ പകർന്നു നൽകും

ഓരോ സംസ്ഥാനത്തു നിന്നും മൂന്ന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എല്ലാ ചീഫ് സെക്രട്ടറിമാർക്കും അയച്ചിട്ടുണ്ട് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കും ഈ മാസം അവസാനത്തോടെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പട്ടികയ്ക്ക് അന്തിമരൂപം നൽകും

വെങ്കയ്യനായിഡുവിന്റെ ലാറ്റിനമേരിക്കയിലെ പരാഗ്വേ കോസ്റ്ററിക്ക എന്നീ രാജ്യങ്ങളിലേക്കുള്ള എട്ട് ദിവസത്തെ പര്യടനം തുടങ്ങി കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

പരാഗ്വേ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ശ്രീ

ഇന്നലെ പരാഗ്വേയിലെത്തിയ ഉപരാഷ്ട്രപതി ഇന്ന് യുദ്ധവീരന്മാരുടെ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കും പിന്നീട് അദ്ദേഹം പരാഗ്വേയുടെ പ്രസിഡന്റ് മാരിയോ അബ്ദോ ബെനിറ്റെസുമായി ചർച്ച നടത്തും ദേശീയികോൺഗ്രസ്സിന്റെ അദ്ധ്യക്ഷൻ സിൽവിയോ ഒവിലറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നട്ടത്തും തുടർന്ന് ഉപരാഷ്ട്രപതി പരഗ്വേയിലെ ഇന്ത്യൻ സ്മൂഹം ഒരുക്കുന്ന സ്വീകരണത്തിൽ പങ്കെടുക്കും

മറ്റന്നാൾ ഉപരാഷ്ട്രപതി കോസ്റ്ററിക്കയിലെ സാൻജോസിൽ എത്തും നിയ്മവാഴ്ച ജനാധിപത്യം സുസ്ഥിരവികസനം സമായാൻം എന്നീ വിഷയങ്ങളിൽ ശ്രീ വെങ്കയ്യനായിഡുവിന്റെ സ്ഫ്ട്ടാവനകൾക്കുള്ള അംഗീകാരമായി യൂണിവേഴ്സിറ്റി ഓഫ് പീസ് അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് നൽകി ആദരിക്കും

ആദ്യ കളിയിൽ ജയിച്ച ആത്മവിശ്വാസവുമായാണ് ഇന്ത്യ ഇന്ന് കളത്തിലിറങ്ങുന്നത്

ആര്യങ്കാവ് തെന്മല ഇടമൺ പുനലൂർ കൊട്ടാരക്കര കുണ്ടറ എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ സ്റ്റോപ്പുകൾ